രാജ്യത്തെ ആദ്യ യോഗ പ്രകൃതിച്ചികിത്സ ഗവേഷണ കേന്ദ്ര ത്തിന് മന്ത്രി കാസർകോഡ് തിറ്ക്ക്ല്ലിട്ടു

സി റോഡിൽ കഴക്കൂട്ടർ മുതൽ അടൂർ വരെയുള്ള സുരക്ഷ ഇടനാഴി ചെങ്ങന്നൂർ വർ നീട്ടുമെന്ന് മന്ത്രി ജി

ദേശീയ റോഡ് സുരക്ഷാവാരാചരണം നാളെ മുതൽ നടക്കും

യോഗ വില്ലേജ് ആയുഷ് വകുപ്പ് രാജ്യത്ത് തുടങ്ങുന്ന യോഗ വില്ലേജുകളിലൊന്ന് കേരളത്തിൽ അനുവദിക്കുമെന്ന് കേന്ദ്ര ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക് കാസർകോട് പറഞ്ഞു കാസർകോട് കരിന്തളത്ത് എൺപത് കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ ആദ്യത്തെ യോഗ പ്രകൃതി ചികിത്സ റിസർച്ച് കേന്ദ്രത്തിന് തറക്കല്പിട്ട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അഷ്ട വൈദ്യൻമാരുടേയും പാരമ്പര്യവൈദ്യൻമാരുടേയും പാരമ്പര്യമുൾപ്പെടെ കേരളത്തിൽ നിന്ന് നാമാവശേഷമാകുന്ന പ്രാദേശിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഈ യോഗ കേന്ദ്രത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ കേന്ദ്രത്തെ പി ജി

മന്ത്രി ഇ ചന്ദ്രശേഖരൻ എം

രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു

ഇ റോഡിൽ കഴക്കൂട്ടം മുതൽ അടൂർ വരെയുള്ള സുരക്ഷാ ഇടനാഴി ചെങ്ങന്നൂർ വരെ നീട്ടുമെന്ന് മന്ത്രി ജി

ഇപ്പോൾ അടൂർ വരെയുള്ള പണികൾ പുരോഗമിക്കയാണെന്നും ചെങ്ങന്നൂർ വരെ നീട്ടാൻ പണം നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടൊപ്പം ചെങ്ങന്നൂർ റോഡ് വീതി കൂട്ടൽ നടപ്പാത നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളും ഉൾപ്പെടും പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ വഞ്ചിമുക്ക് നിരക്കുംപാറ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു

ഇത്തവണ സുരക്ഷാവാരം നിങ്ങളുടെ സുരക്ഷ കുടുംബത്തിന്റെ രക്ഷ നിരത്തിൽ ജാഗ്രത പാലിക്കൂ എന്ന സന്ദേശവും ഇതോടൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകു പ്പാണ് പരിപാടിയുടെ സംഘാടകർ ടോൾ പ്നാസ വല്ലാർപാടം കണ്ടെയ്നർ റോസിൽ പൊന്നാരിമംഗലത്ത് സ്ഥാപിച്ച ടോൾ പ്താസയിൽ ടോൾ പീരിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ സർവീസ് പ്രതിഷേധിച്ചു റോഡ് പണി പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് നാട്ടുകാരുടെ ആവശ്യം

സ്ഥലത്തെത്തിയ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി

പുനലൂർ ചെങ്കോട്ട വഴിയാണ് സർവീസ്

പമ്പ മണൽപ്പുറത്ത് പ്രത്യേക്ക് തയ്യാറാക്കിയ വിദ്യാധിരാജ നഗറിൽ ഉച്ചക്ക്ശേഷം പരിഷത് ആര്ട്ടിക്കും ചിന്മയാ മിഷൻ കേരളാ ഘടകം മേധാവി സ്വാമി വിവിക്താനിന്ദു സ്രസ്വതി ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിക്കും സ്വാമി പ്രജ്ഞാനന്ദ തീർഥപാദർ പ്രഭാഷണം നടത്തും

പി പ്രവർത്തകർ സി പി ഐഎം ൽ ചേരുന്ന സമ്മേളനം ഇന്ന് ഉച്ച തിരിഞ്ഞ് കൊല്ലത്ത് നടക്കും

വിദ്യാർത്ഥി പാർലമെന്റ് തൃശൂർ ജില്ലയിലെ മതിലകം പഞ്ചായത്തിലെ പെരുംതോട് വലിയതോട് പദ്ധതിയിലെ ഒന്നാംഘട്ട സ്തുയ്സുകളുടെ നിർമ്മാണോദ്ഘാടനം ഇന്ന് ഉച്ചതിരിഞ്ഞ് കുറുഞ്ഞിപ്പുറം പാലം പരിസരത്ത് മന്ത്രി കെ

എൽ

ടോസ് നേടി ആദ്യും ബാറ്റ് ചെയ്ത ഇന്ത്യ ഒരു ഘട്ടത്തിൽ തകർച്ച നേരിട്ടെങ്കിലും പിന്നീട് സ്കോർ ഉയർത്തുകയായിരുന്നു

നിമയസഭാ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചു

ഫുട്ബോൾ അത്ലറ്റിക്സ്വോളിബോൾ ് എ്ന്നീ ഇനങ്ങളിലാണ് പരിശീലനങ്ങൾ ആദ്യം ആരംഭിക്കുക ചൊവ്വാഴ്ച ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഫറുഖ്ഖാൻ ഉദ്ഘാടനം ചെയ്യും ശംഖുമുഖം പ്രദർശനം തിരുവനന്തപുരത്ത് ശംഖുമുഖം ആർട്ട് മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ കലാപ്രദർശനം ബോഡി ഇന്ന് വൈകുന്നേരം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

ചിത്രങ്ങൾ ശിൽപങ്ങൾ കലാവിന്യാസങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഉണ്ടാകും

ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണനമേള വികസന സെമിനാറുകൾ സാംസ്കാരികൃപ്പിപ്പാടികൾ എന്നിവ ഉണ്ടാകും പരിപാടികളുടെ ഉദ്ഘാടനം ഇടൂക്കിയിലും പ്രദർശന വിപണനമേള നെടുങ്കണ്ടത്തുമാണ് നടത്തുക ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വിവിധ പദ്ധതികളുടെ നിർമ്മാണ്ണോട്ട്ഘാടനവും പൂർത്തിയായ പദ്ധതികളുടെ സമർപ്പണവും ഇക്കാലയളവ്വിൽ നടത്തും കാർഷികരംഗം കച്ചവടലാഭം മുൻനിർത്തി ഭക്ഷ്യവസ്തുക്കളിൽ വിഷമയമായ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്ന പ്രവണത മറികടക്കുന്നതിന് യുവാക്കളുൾപ്പെടെയുള്ളവർ കാർഷികരംഗത്തേയ്ക്ക് കടന്നു വരണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ കോർപ്പറേഷൻ എടക്കട് സോണൽ അനുബന്ധിച്ച് നിർമ്മിക്കുന്ന ഓഫീസിനോട് കൃഷിഭവൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി

ജൈവ പച്ചക്കറികളും മറ്റ് ഭക്ഷ് ഉൽപന്നങ്ങളും സംസ്ഥാനത്ത് തന്നെ ഉൽപാദിപ്പിക്കുന്നതിന് ഗവൺമെന്റ് പരിഗണനയാണ് നൽകുന്നതെന്ന് മികച്ച മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു

ജെ പി നടത്തിയ ഹർത്താലിനിടെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിലെ മുഖ്യപ്രതി പ്രവീൺ പോലീസ് പിടിയിലായി

ജനമഹായാത്ര കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് കാസർകോട് നയാന്മാർമൂലയിൽ നിന്ന് ആരംഭിക്കും വൈകിട്ട് പ്രവർത്തക സമിതി അംഗം എ

വർക്കിംഗ് കമ്മിറ്റി അംഗം കെ

വേണുഗോപാൽ എ ഐ

സി ജനറൽ സെക്രട്ടറിമാരായ മുകുൾ വാസ്നിക് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല കർണ്ണാടകമന്ത്രി ഡി

ശിവകുമാർ തുടങ്ങിയ രമേശ് നേതാക്കൾ സംബന്ധിക്കും

ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കി വരുന്ന സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ഗ്രാമ പഞ്ചായത്ത് എന്ന പദ്ധതിയിലേയ്ക്ക് തിരുവനന്തപുരത്തെ എട്ട് പഞ്ചായത്തു കളെ തെരഞ്ഞെടുത്തു പാങ്ങോട് കാഞ്ഞിരംകുളം കുന്നത്തുകാൽ പള്ളി ച്ചൽ ഒറ്റൂർ മുദാക്കൽ വിതുര മാണിക്കൽ എന്നീ പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തത് ഭക്ഷ്യാല്പാദന ശേഖരണ വിതരണ വിൽപന മേഖലക ളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെക്കുറിച്ച് വിവരങ്ങൾ സമാഹരിക്കുകയാണ് ഇതു വഴി ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി പാർലമെന്റ് കേരള നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ദേശീയ വിദ്യാർത്ഥി പാർലമെന്റിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവ്വഹിക്കും

പകർച്ചവ്യാനി പകർച്ചവ്യാധി നിയന്ത്രണം ലക്ഷ്യമിട്ട് ആരോഗൃ വകുപ്പ് ആരംഭിച്ച ആരോഗൃ ജാഗ്രത പരിപാടിയുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും ആരോഗ്യ ജാഗ്രതയ്ക്കായി പ്രവർത്തന രൂപരേഖ തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി കെ

ശൈലജ പറഞ്ഞു